എഫ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് മുന്നോടിയായി സംഘടിപ്പിക്കുന്ന കേരള സംരക്ഷണ യാത്രയ്ക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി

എം

അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്സി ഉദ്ഘാടനം ചെയ്യും കാനം രാജേന്ദ്രൻ നയിക്കുന്ന വടക്കൻ മേഖലാ ജാഥ മറ്റന്നാൾ സി

എം ജനറൽ സെക്രട്ടറി സിതാറാം യെച്ചൂരി മഞ്ചേശ്വരത്ത് ഉദ്ഘാടനം ചെയ്യും

ജെ

തിരുവനന്തപുരം അറ്റിങ്ങൽ കൊല്ലം പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലങ്ങൾ ചേർന്നുള്ള തിരുവനന്തപുരം ക്ലസ്റ്ററിലെ ശക്തി കേന്ദ്ര നേതാക്കളുടെ യോഗം അൽപസമയത്തിനകം പത്തനംതിട്ട കുമ്പഴയിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിതൃനാഥ് ഉൽഘാടനം ചെയ്യും

ജെ

സി പ്രസിഡന്റ് മൂല്ലപ്പള്ളി രാമചന്ദ്രൻ തെരഞ്ഞെടുപ്പിൽ സി